എസ് എൽ ഫുട്ബോളിൽ നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡിന് ജയം

രണ്ടാം ലോക മഹാ യുദ്ധത്തിന് ശേഷം ലോകം നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളിയാണ് കോവിഡെന്നും പ്രധാനമന്ത്രി പറഞ്ഞു

ഭൂമിയുടെ സംരക്ഷണം ഉറപ്പു വരുത്തി സാമ്പത്തികമായ തിരിച്ചു വരവ് തൊഴിൽ വ്യാപാരം എന്നിവയിൽ നിർണായക തീരുമാനം ഉച്ചകോടി കൈക്കൊള്ളണം

രുര സംസ്ഥാനത്ത് കോവിഡ് ബാധിച്ച് മരിച്ചവരുടെ എണ്ണം രണ്ടായിരം കവിഞ്ഞു

വിശദാശംങ്ങളുമായി ജഷിത കുമാരി വോയ്സ് ദേഴ സംസ്ഥാനത്ത് ഇന്നലെയും കോവിഡ് രോഗികളേക്കാൾ കൂടുതൽ പേർ രോഗമുക്തരായി

വൈകീട്ട് മൂന്ന് വരെ പത്രിക പിൻവലിക്കാം ഇതോടെ തെരഞ്ഞെടുപ്പ് ചിത്രം വ്യക്തമാകും ഒരു സ്ഥാനാർത്ഥിയുടെ പിൻവലിക്കൽ സാധുവാണെങ്കിൽ അത് പിന്നീട് റദ്ദാക്കാനാവില്ലെന്ന് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷണർ വി

സ്ഥാനാർഥിത്വം പിൻവലിക്കുന്നതിന് ലഭിക്കുന്ന നോട്ടീസ് ആധികാരികത ഉറപ്പാക്കിയ ശേഷമേ സ്വീകരിക്കാവൂ എന്ന് അദ്ദേഹം വരണാധികാരികൾ നിർദേശം നൽകി സ്ഥാനാർത്ഥി നിർദേശകൻ തെരഞ്ഞെടുപ്പ് ഏജന്റ് എന്നിവർക്ക് സ്ഥാനാർത്ഥിത്വം പിൻവലിക്കുന്നതിന് നോട്ടീസ് നൽകാം നിർദേശകനോ തെരഞ്ഞെടുപ്പ് ഏജന്റോ ആണ് നോട്ടീസ് നൽകുന്നതെങ്കിൽ സ്ഥാനാർത്ഥിയുടെ രേഖാമൂലം അനുമതി ഹാജരാക്കണമെന്നും കമ്മീഷണർ അറിയിച്ചു

പൻമന പഞ്ചായത്ത് അഞ്ചാംവാർഡിലെ ബി ജെ

സ്ഥാനാർത്ഥി വിശ്വനാഥൻ ആണ് മരിച്ചത്

കുലശേഖരപുരം പത്തനാപുരം നെടുമ്പന പെരിനാട് ഡിവിഷനുകളിലാണ് പത്രിക പിൻവലിച്ചത് രുമ ഹൈക്കോടതി വിധിയുടെ അടിസ്ഥാനത്തിൽ കേരളാ കോൺഗ്രസ് എം ജോസ് കെ മാണി നയിക്കുന്ന പാർട്ടിക്ക് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ രണ്ടില ചിഹ്നം അനുവദിച്ചു ചിഹ്നം സംബന്ധിച്ച് ഹൈക്കോടതിയിൽ കേസ് നിലനിന്ന സാഹചര്യത്തിൽ രണ്ടില ചിഹ്നം മരവിപ്പിച്ച കമ്മീഷൻ ജോസ് കെ മാണി വിഭാഗത്തിന് ടേബിൾ ഫാനും പി

രംഭ പാലക്കാട് ജില്ലയിലെ വിവിധ മണ്ഡലങ്ങളിൽ ഇന്ന് നടക്കുന്ന എൻ

എ സ്ഥാനാർഥി സംഗമങ്ങൾ വിദേശകാര്യ സഹമന്ത്രി വി

കൂറ്റനാട് പറളി കൊല്ലങ്കോട് പുതുശ്ശേരി പാലക്കാട് വടക്കന്തറ എന്നിവിടങ്ങളിലെ സ്ഥാനാർത്ഥി സംഗമങ്ങളാണ് മുരളീധരൻ ഉദ്ഘാടനം ചെയ്യുക രും കണ്ണൂർ ജില്ലയിലെ മാവോവാദി ഭീഷണി നേരിടുന്ന മലയോര മേഖലയിലെ പോളിങ് ബൂത്തുകളിൽ കർശന സുരക്ഷ ഒരുക്കും

പോലീസിന് പുറമേ തണ്ടർ ബോൾട്ട് നിരീക്ഷണവും ഏർപ്പെടുത്തും രുര തദ്ദേശ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട പ്രചരണ പ്രവർത്തനങ്ങളിൽ കോവിഡ് പ്രതിരോധവും മാർഗനിർദേശങ്ങളും സംബന്ധിച്ച ബോധവത്കരണം നൽകാനും അവ പാലിക്കുന്നത് ഉറപ്പുവരുത്താനും ആരോഗ്യവകുപ്പിന്റെ പ്രത്യേക സെല്ലുകൾ ഇടുക്കി ജില്ലയിൽ പ്രവർത്തനമാരംഭിച്ചു ജില്ലയിൽ എല്ലായിടത്തും നിരീക്ഷണങ്ങളും പരിശോധനകളും നടത്തും

ഇക്കാര്യം ജയിൽമേധാവി സംസ്ഥാന പോലീസ് മേധാവിയുടെ ശ്രദ്ധയിൽപ്പെടുത്തിയതിനെ തുടർന്നാണ് പ്രാഥമിക അന്വേഷണം നടത്താൻ ക്രൈംബ്രാഞ്ചിനെ ചുമതലപ്പെടുത്തിയത് രുര കൊച്ചി പാലാരിവട്ടം പാലം അഴിമതി കേസിൽ പ്രതിയായ മുൻ മന്ത്രി വി

ചൊവ്വാഴ്ചക്കകം മെഡിക്കൽ ബോർഡ് ചേർന്ന് റിപ്പോർട്ട് നൽകുമെന്ന് സൂപ്രണ്ട് അറിയിച്ചു വിജിലൻസ് ഇബ്രാഹിം കുഞ്ഞിന്റെ കസ്റ്റഡി ആവശ്യപ്പെട്ടതിനെ തുടർന്നാണ് ആരോഗ്യനില പരിശോധിച്ച് റിപ്പോർട്ട് നൽകാൻ കോടതി നിർദേശിച്ചത് രംഭ ഏഴിമല നാവിക അക്കാദമയിൽ ബോംബ് ആക്രമണ ഭീഷണി ഉണ്ടായ സാഹചര്യത്തിൽ കൂടുതൽ പരിശോധനകൾ നടത്തണമെന്ന് ആവശ്യപ്പെട്ട് അക്കാദമി ജില്ലാ പോലീസ് മേധാവിക്ക് കത്ത് നൽകി ഉയർന്ന നാവികസേനാ ഉദ്യോഗസ്ഥരുടെ സാന്നിധ്യത്തിലായിരിക്കും അക്കാദമിക്കുള്ളിലെ പരിശോധനകൾ ഇന്നലെ പയ്യന്നൂർ സി

യുടെ നേതൃത്വത്തിൽ അക്കാദമിയിൽ അന്വേഷണം നടത്തി രും ഗോവയിൽ ഇന്ത്യൻ സൂപ്പർലീഗ് ഫുട്ബോളിൽ നോർത്ത് ഈസ്റ്റ് യുനൈറ്റഡിന് വിജയം കരുത്തരായ മുംബൈ സിറ്റിയെ ഏകപക്ഷീയമായ ഒരു ഗോളിനാണ് നോർത്ത് ഈസ്റ്റ് യുനൈറ്റഡ് തോൽപ്പിച്ചത്

രും സ്വാശ്രയ മെഡിക്കൽ ഫീസ് വർദ്ധിപ്പിക്കാൻ ഹൈക്കോടതി ഉത്തരവിട്ടതിനെതിരെ സുപ്രീംകോടതിയിൽ സംസ്ഥാന ഗവൺമെന്റ് സമർപ്പിച്ച ഹർജി വിദ്യാർത്ഥികളുടെ കണ്ണിൽ പൊടിയിടാനാണെന്ന് ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ കെ

ഗവൺമെന്റും സ്വകാര്യ മെഡിക്കൽ കോളജ് മാനേജ്മെന്റുകളും തമ്മിലെ ഒത്തുകളിയാണ് ഫീസ് വർദ്ധനയ്ക്ക് കാരണമായതെന്ന് അദ്ദേഹം തിരുവനന്തപുരത്ത് പറഞ്ഞു ജസ്റ്റിസ് രാജേന്ദ്ര ബാബു സമിതി നിശ്ചയിച്ച ഫീസിനെതിരെ മാനേജ്മെന്റ് ഹൈക്കോടതിയെ സമീപിച്ചപ്പോൾ ഗവൺമെന്റ് കാണിച്ച അലംഭാവമാണ് കേസ് തോൽക്കാൻ കാരണമായതെന്നും സുരേന്ദ്രൻ കുറ്റപ്പെടുത്തി

രാജമാണിക്യത്തിനെതിരെ കൊച്ചി മെട്രോ റെയിലിന് വേണ്ടി സ്ഥലം ഏറ്റെടുത്തത് സംബന്ധിച്ച കേസ് വീണ്ടും അന്വേഷിക്കാൻ വിജിലൻസിന് ഗവൺമെന്റ് അനുമതി നൽകിയതിന് പിന്നിൽ ഒട്ടേറെ ദുരൂഹതയുണ്ടെന്ന് ബിജെപി മുൻ സംസ്ഥാന അധ്യക്ഷൻ കുമ്മനം രാജശേഖരൻ പറഞ്ഞു കേസിൽ തെളിവില്ലെന്നും അദ്ദേഹം കുറ്റക്കാരനല്ലെന്നും വിജിലൻസ് കോടതിയിൽ റിപ്പോർട്ട് നൽകിയതാണെന്ന് അദ്ദേഹം തിരുവനന്തപുരത്ത് പറഞ്ഞു അതേസമയം സി ബി ഐ കുറ്റക്കാരെന്ന് കണ്ടെത്തിയ കാഷ്യു വികസന കോർപറേഷൻ ചെയർമാനും എംഡിക്കും എതിരെ കേസ് എടുക്കാൻ ഗവൺമെന്റ് അനുമതി നൽകുന്നില്ലെന്നും കുമ്മനം കുറ്റപ്പെടുത്തി രും പട്ടയഭൂമിയിലെ നിയന്ത്രണം സംബന്ധിച്ച് പ്രമുഖ മലയാള പത്രങ്ങളിൽ പ്രസിദ്ധീകരിച്ച വാർത്ത വാസ്തവ വിരുദ്ധമാണെന്ന് റവന്യു പ്രിൻസിപ്പൽ സെക്രട്ടറി എ

ഇതുമായി ബന്ധപ്പെട്ട് ഔദ്യോഗികമായോ അനൌദ്യോഗികമായോ യോഗം ചേർന്നിട്ടില്ലെന്നും അദ്ദേഹം തിരുവനന്തപുരത്ത് വ്യക്തമാക്കി രംഭ പുറപ്പെടൽ കേന്ദ്രം കരിപ്പൂരിൽ ഹജ്ജ് പുനഃസ്ഥാപിക്കണമെന്നാവശ്യപ്പെട്ട് കേന്ദ്ര ഹജ്ജ് മന്ത്രിയെയും കേന്ദ്ര ഹജ്ജ് കമ്മറ്റി ചീഫ് എക്സിക്യുട്ടീവ് ഓഫീസറെയും നേരിട്ട് കാണുമെന്ന് സംസ്ഥാന ഹജ്ജ് കമ്മറ്റി മലപ്പുറത്ത് അറിയിച്ചു ഓൺലൈൻ അപേക്ഷാ സമർപ്പണത്തിന് സഹായകേന്ദ്രം ആരംഭിക്കുമെന്നും ഹജ്ജ് കമ്മറ്റി വെളിപ്പെടുത്തി

കൊവിഡ് മാനദണ്ഡങ്ങൾ പാലിച്ചായിരിക്കണം ഹാർബറിന്റെ പ്രവർത്തനങ്ങൾ